റോഷ്നി പദ്ധതിയുടെ വെബ്സൈറ്റ് ഉദ്ഘാടനവും മലയാളഭാഷ പ രിജ്ഞാനരേഖ സമീക്ഷയുടെ പ്രകാശനവും കൊച്ചിയിൽ നിർവഹിച്ചു സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി രാജ്യത്തെ എല്ലാ ജനങ്ങളെയും ഒരുപോലെ കാണുന്ന നാടാണ് കേരളമെന്നും മതനിരപേക്ഷതയാണ് ഇതിന്റെ അടി സ്ഥാനമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു ശരണമന്ത്രങ്ങളെ പൊലീസിന്റെ ആയുധങ്ങളുപയോഗിച്ച് ഇല്ലാതാക്കാൻ ശ്രമിച്ചാൽ പിണറായി വിജയനായിരിക്കും കേരളത്തിൽ സി പി ഐ എമ്മിന്റെ അവസാന മുഖ്യമന്ത്രി യെന്ന് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ പി എസ് ശ്രീധ രൻപിള്ള പറഞ്ഞു എൻ ഡി എ ശബരിമല രഥയാത്രക്ക് ചേളാരിയിൽ നൽകിയ സ്വീകരണയോഗത്തിൽ സംസാരി ക്കുകയായിരുന്നു അദ്ദേഹം ശബരീമല അയ്യപ്പനെ എതിരി ട്ടവരാരും നല്ല രീതിയിൽ മുന്നോട്ടു പോയിട്ടില്ലെന്ന് ശ്രീധരൻപിള്ള ഓർമ്മപ്പെടുത്തി

ജാഥ ഇന്ന് രാവിലെ എടപ്പാളിലെ സ്വീക രണത്തിനുശേഷം തൃശൂർ ജില്ലയിൽ പ്രവേശിക്കും

കെ പി സി സിയുടെ രണ്ട് യാത്രകൾ കൂടി ഇന്നാരംഭിക്കും കെ പി സിസി പ്രചാരണവിഭാഗം ചെയർമാൻ കെ മുരളീധരൻ നയിക്കുന്ന പദയാത്ര തിരുവ നന്തപുരം പാളയത്ത് രാവിലെ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല ഉദ്ഘാടനം ചെയ്യും ഇന്നും നാളെയും ജില്ല യിൽ പര്യടനം നടത്തും

തീർത്ഥാടനത്തിന് ഒരാഴ്ച മാത്രം ബാക്കി നിൽക്കെ കുടി വെള്ളം ശുചിമുറി തുടങ്ങി അടിസ്ഥാന സൌകര്യങ്ങൾ പോലും തീർത്ഥാടകർക്കായി ഇതു വരെ ഒരുക്കാനായിട്ടില്ലെന്ന് അദ്ദേഹം തിരുവനന്തപുരത്ത് പറഞ്ഞു നെയ്യാറ്റിൻകരയിൽ യുവാവിനെ ഡി വൈ എസ്പി കാറിനു മുന്നിലേരക്ക് തള്ളിയിട്ടു കൊലപ്പെടുത്തിയ കേസിൽ ജുഡീഷ്യൽ അന്വേഷണം നടത്തണമെന്നും മുര ളീധരൻ ആവശ്യപ്പെട്ടു സനലിന്റെ കുടുംബത്തെ മുഖ്യമന്ത്രി ഇതുവരെ സന്ദർശിച്ചില്ലെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി

സമ്മേളനത്തിന്റെ പതാക കൊടിമരം ദീപശിഖ ജാഥകൾ വൈകീട്ട് കടപ്പുറത്ത് പൊതുസമ്മേളന നഗരിയിൽ സംഗമിക്കും തുടർന്ന് സാഗതസംഘം ചെയർമാൻ പി മോഹനൻ പതാക ഉയർത്തും ബുധ നാഴ് ച സമാ പ ന റാലി മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും

ശബരിമലയിലെ സ്ത്രീ പ്രവേശന വിഷയം നവോത്ഥാന പ്രവർത്തനങ്ങളുടെ ഭാഗമായി കണ്ട് ഭൂതകാലവുമായി ബന്ധപ്പെടുത്തി ചിന്തിക്കണം കോടതി വിധി വന്ന സാഹചരൃത്തിൽ ഭരണഘടനടയ്ക്ക് താഴെയാണ് വിശ്ചാസവും ആചാരവും എല്ലാം എന്നും മന്ത്രി വ്യക്തമാക്കി

ദൈവ ഹിതത്തിന്റെ പേരിൽ സംസാരിക്കുന്നവർ എന്താണ് ദൈവ ഹിതമെന്ന് മനസ്സിലാക്കണമെന്നും മനുഷ്യനെ മനുഷ്യനായി കാണുന്ന ആചാരങ്ങളാണ് ആവശ്യമെന്നും മന്ത്രി പറഞ്ഞു

ലലലലലലലലലലലലലല ജനാധിപത്യ വ്യവസ്ഥ ഇല്ലാതിരുന്ന കാലഘട്ടത്തിൽ ശ്രീ ചിത്തിര തിരുനാൾ നടത്തിയ ക്ഷേത്രപ്രവേശന വിളം ബരത്തിന് ഇന്നും ഏറെ പ്രസക്തിയുണ്ടെന്ന് മന്ത്രി ഇ ചന്ദ്ര ശേഖരൻ പറഞ്ഞു

ക്ഷേത്രപ്രവേശന വിളംബരത്തിന്റെ കാസർകോട് ജില്ലാതല ഉദ്ഘാടനം കാഞ്ഞങ്ങാട്ട് നിർവഹിക്കുകയായി രുന്നു മന്ത്രി

ശ്രീനാരായണഗുരു അയ്യങ്കാളി ചട്ടമ്പി സ്ഥാമികൾ ്യതുടങ്ങിയ സാമൂഹ്യ പരിഷ്കർത്താക്കൾ ദീർഘ ദർശനത്തോടെ നടത്തിയ സാമൂഹ്യ മുന്നേറ്റങ്ങളിൽ നിന്നും കേരളത്തിന് പിന്നോട്ട് സഞ്ചരിക്കുവാൻ ആവില്ല എന്നും അദ്ദേഹം പറഞ്ഞു

മാധ്യമ സ്വാതന്ത്ര സംരക്ഷണത്തിനും മാധ്യപ്ര വർത്തകർക്കും നേരെ നടക്കുന്ന അതിക്രമങ്ങൾക്കെതിരെ കേരള പത്രപ്രവർത്തക യൂണിയൻ സംസ്ഥാന കമ്മറ്റിയുടെ നേതൃത്വത്തിൽ പത്തനംതിട്ടയിൽ നടന്ന പ്രതിഷേധ സദസ്സ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം

നവോത്ഥാന ചരിത്ര പ്രദർശനം മന്ത്രി രാമച ന്ദ്രൻ കടന്നപള്ളി ഉദ്ഘാടനം ചെയ്യും ക്ഷേത്രപ്രവേശന വിളംബരത്തിന്റെ വാർഷികാഘോഷ ങ്ങളുടെ ഭാഗമായി കോൺഗ്രസ് നേതൃത്വത്തിൽ നാളെ ജില്ലാ കേന്ദ്രങ്ങളിൽ നവോത്ഥാന സംഗമങ്ങൾ സംഘടിപ്പിക്കുമെന്ന് കെ പി സിസി പ്രസിഡണ്ട് മുല്ലപ്പള്ളി രാമചന്ദ്രൻ അറിയി ച്ചു വിദൂരബന്ധം പോലുമില്ലാത്ത നവോത്ഥാന പോരാട്ട ങ്ങളെ ഹൈജാക്ക് ചെയ്യാൻ സി പി ഐ എം ശ്രമിക്കുന്നത് അപഹാസ്യമാണെന്ന് അദ്ദേഹം തിരുവനന്തപുരത്ത് പറ ഞ്ഞു ഐ എസ് എൽ ഫുട്ബോളിൽ കൊച്ചിയിൽ ഇന്ന് വൈകീട്ട് കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സി ഗോവയെ നേരി ടും ഈ സീസണിൽ രണ്ടാം ജയം തേടിയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് സ്വന്തം തട്ടകത്തിൽ ഇന്ന് കളിക്കിറങ്ങുന്നത് കൊൽക്കത്തയിൽ ഇന്നലെ നടന്ന മത്സരത്തിൽ എതി രില്ലാത്ത ഒരു ഗോളിന് എ ടി കെ കൊൽക്കത്ത പൂനെ സിറ്റിയെ തോൽപ്പിച്ചു

ഇന്ന് ഷില്ലോങ്ങ്ലജോങ്ങ് എഫ്

വൈകീട്ട് അഞ്ചിന് കോഴിക്കോട് കോർപ്പറേഷൻ ഇ

സ്റ്റേഡിയത്തിലാണ് മത്സരം

വൈകീട്ട് ഏഴിന് ചിദംബരം സ്റ്റേഡിയത്തിലാണ് മത്സരം നേരത്തെ നടന്ന രണ്ട് മത്സരങ്ങളും ജയിച്ച ഇന്ത്യ പരമ്പരയിൽ സമ്പൂർണ ജയം ലക്ഷ്യമിട്ടാണ് അവസാന കളിക്കിറങ്ങുന്നത്

ആദ്യ മത്സരത്തിൽ ന്യൂസിലാന്റിനെ തോൽപ്പിച്ച് ആത്മവിശ്ചാസവുമായാണ് ഇന്തൃ പാകിസ്ഥാനെ തിരെ കളിക്കുന്നത്

ജില്ലാ ഹെഡ്കാർട്ടേഴ്സ് രണ്ടാം സ്ഥാനവും ഇരിട്ടി സബ് ഡിവി ഷൻ മൂന്നാം സ്ഥാനവും നേടി ലലലലലലലലലലലല ലോകത്തെ ഏറ്റവും ശാസ്ത്രീയമായ വിദ്യാഭ്യാസം ലഭി ക്കുന്ന സംസ്ഥാനമായി കേരളം മാറണമെന്ന് മന്ത്രി സി രവീ ന്ദ്രനാഥ് പറഞ്ഞു കിഡ്സ് അത്ലറ്റിക് പദ്ധതിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം കൊച്ചിയിൽ നിർവഹിക്കുക യായിരുന്നു അദ്ദേഹം കുട്ടികളെ സംബന്ധിച്ച് വളരെയധികം പ്രാധാനൃമുളള കിഡ്സ് അത്ലറ്റിക്സ് അടുത്തവർഷം മുതൽ സംസ്ഥാനത്തെ എല്ലാ സ്കൂളുകളിലേക്കും വൃാപി പ്പിക്കുമെന്നും മന്ത്രി പറഞ്ഞു

കേരളത്തിൽ ഓഫ് ക്യാമ്പസ് തുടങ്ങുന്നതിന് ഉന്നത വിദ്യാ ഭ്യാസ വകുപ്പിന് അപേക്ഷ നൽകിയിരുന്നെങ്കിലും അത് പരി ഗണിച്ചിട്ടില്ലെന്ന് ഓഫീസ് വൃക്തമാക്കി

പലയിടങ്ങ ളിലും പൊലീസ് ബലം പ്രയോഗിച്ചാണ് പ്രതിഷേധക്കാരെ നീക്കിയിത്

മലപ്പുറം ബസ്സ്റ്റാന്റിന് സമീപം പ്രതിഷേധക്കാർക്കെതിരെ പൊലീസ് നടത്തിയ ലാത്തി പ്രയോഗത്തിൽ നിരവധി പേർക്ക് പരിക്കേറ്റു എന്നാൽ മുസ്ലീംലീഗ് തന്നെ ഭീഷണിപ്പെടുത്തുകയായി രുന്നുവെന്നും വഴിവിട്ട് ഒരു കാര്യവും ചെയ്തിട്ടില്ലെന്നും മന്ത്രി ഡോക്ടർ കെ ടി ജലീൽ പ്രതികരിച്ചു ലലലലലലലലലലലല പാശ്ചാതൃ തത്വശാസ്ത്രങ്ങളെക്കാളും എന്തുകൊണ്ടും മികച്ചത് ഇന്ത്യൻ തത്വശാസ്ത്രങ്ങളാണെന്ന് കേന്ദ്രമന്ത്രി അൽഫോൺസ് കണ്ണന്താനം പറഞ്ഞു

ഇന്ത്യൻ തത്വശാസ്ത്രങ്ങൾ ജീവിതത്തിന്റെ ഭാഗമാക്കണമെന്നും കണ്ണന്താനം അഭിപ്രായപ്പെട്ടു

കൊല്ലം നീണ്ടകരയിൽ ബൈക്ക് നിയന്ത്രണംവിട്ട് പോസ്റ്റിലിടിച്ച് മത്സ്യത്തൊഴിലാളി മരിച്ചു

ലലലലലലലലലലലല ഖാദി മേഖലയിൽ ഇതരസംസ്ഥാനങ്ങളിൽ നിന്ന് തുണി കൊണ്ടുവന്നു കേരളത്തിലെ റിബേറ്റ് തട്ടിയെടുക്കുന്ന രീതി അനുവദിക്കില്ലെന്ന് മന്ത്രി ഇ

കേരള ഖാദി വർക്കേഴ്സ് ഫെഡറേഷൻ സംസ്ഥാന സമ്മേളനം പാലക്കാട്ട് ഉത്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി

ചുള്ളിയാർ ഡാം ഇന്ന് തുറക്കും മുതലമട കൊല്ലങ്കോട് എലവഞ്ചേരി വടവന്നൂർ കൊടുവായൂർ പുതുനഗരം പഞ്ചായത്തുകളിലെ നെൽകൃഷിക്ക് ഇതിന്റെ പ്രയോജനം ലഭിക്കും

ആന്ധ്രപ്രദേശിലെ കക്കിനട തുറമുഖത്തുനിന്നാണ് വല്ലാർപാടം കണ്ടെയ്നർ പോർട്ടിൽ അരിയെത്തിച്ചത് നേരത്തെ ട്രെയിൻ മാർഗ്ഗമാണ് അരി കേര ളത്തിലേക്ക് കൊണ്ടുവന്നിരുന്നത് പഞ്ചാബ് ഹരിയാന എന്നി വിടങ്ങളിൽ നിന്ന് കപ്പൽമാർഗ്ഗം ഗോതമ്പ് എഫ് സി ഐ ക്ക് എത്തിക്കുന്നതിന് നടപടികൾ ആരംഭിച്ചതായി തുറമുഖ ട്രസ്റ്റ് ചെയർമാൻ ഡോക്ടർ എം ബീന അറിയിച്ചു